എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷ്തയിൽ ഉന്നതതല യോഗം ചേർന്നു

രാജ്യത്ത് കോവിഡ് വ്യാപ്പന്ം അതിരൂക്ഷമായി തുടരുന്നു

നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ

ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി

കോവിഡ് വ്യാപനം രൂക്ഷമായ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമായ നിർദ്ദേശങ്ങൾ യഥാസമയം നൽകി വരുന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്ര ഉത്തർ പ്രദേശ് മധ്യപ്രദേശ് ഛത്തീ സ്ഗഢ് ഗുജറാത്ത് ഡൽഹി രാജസ്ഥാൻ കർണ്ണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു

രാജ്യ്ക്ത്ത് ഓക്സിജൻ നിർമ്മാതാക്കളുമായി സംവദിക്കുകയായിരുന്നു് അദ്ദേഹം

സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഓക്സിജൻ നിർമ്മാതാക്കൾക്ക് ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പുനൽകി

ഓക്സിജൻ വിതരണം സുഗമമാക്കുന്നതിനുള്ള നിരവധി നടപടികൾ യോഗം ചർച്ച ചെയ്തു ഒരു റിപ്പോർട്ട്

വിവിധ് സംസ്ഥാനങ്ങളിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം കണക്കിലെടുത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓക്സിജൻ എത്തിക്കുന്നതിന് ഒരു വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചു അത്യാവശ്യ മേഖലയ്ക്കൊഴികെ വ്യാവസായിക ആവശ്യത്തിനുള്ള ഓക്സിജൻ വിതരണം കേന്ദ്ര സർക്കാർ നിരോധിച്ചത് മെഡിക്കൽ ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്

അധിക ടാങ്കറുകൾ ലഭ്യമാക്കുന്നത്തിന്ടു ഉയർന്ന ശേഷിയുള്ള ടാങ്കറുകൾ സിംഗപ്പൂർ യു എ ഇ് ് എ് എ്ന്നിവിടങ്ങളിൽ നിന്നും വ്യോമസേനയുടെ പ്പ്രത്യേക് വിമാനങ്ങളിൽ രാജ്യത്തെത്തിക്കാനുള്ള ശ്രമ്ങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ നടന്നുവരുന്നു മെഡിക്കൽ ഓക്സിജൻ വിതരണത്തിന് റെയിൽവേ രാജ്യവൃക്പ്ക്മായി പ്രത്യേക സർവ്വീസുകൾ നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

എറണാകുളം കോഴിക്കോട് തൃശൂർ മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെ്യ്തത്

തുടർന്നുള്ള ദിവസങ്ങളിലെ നിയന്ത്രണങ്ങളെ കുറിച്ച് തിങ്കളാഴ്ച ചേരുന്ന സർവ്വകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും

ഐ

അവശ്യ സർവീസ് ജീവനക്കാർക്ക് ജോലി സംബന്ധമായ തിരിച്ചറിയൽ കാർഡും സത്യവാങ്മൂലവും ഉപയോഗിച്ച് യാത്ര ചെയ്യാവുന്നതാണ് കാറിൽ ഒരാൾ മാത്രം യാത്ര ചെയ്താലും മാസ്ക് നിർബന്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി

രമണ ഇന്ന് സ്ഥാനമേൽക്കും

ബോബ്ഡെ ഇന്നലെ വിരമിച്ച ഒഴിവിലാണ് എൻ

രമണ സ്ഥാനമേൽക്കുന്നത്

സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പരാധീനത പരിഗണിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം വാക്ട്സിൻ സൌജന്യമായി നൽകണം

വ്യാഴാഴ്ച മുതൽ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് വാക്സീൻ നൽകുന്നത് വാക് സീൻ സ്വീകരിക്കാൻ എത്തുന്നവരുടെ എണ്ണം വർധിക്കുകയും ലഭ്യമാകുന്ന വാക്സിന്റെ അളവ് കുറയുകയും ചെയ്തതോടെ സ് പോട്ട് രജിസ്ട്രേഷൻ നിർത്തലാക്കിയിരുന്നു

ഇതോടെ പൂരത്തിന്റെ ഭാഗമായുള്ള പ്രധാന വെടിക്കെട്ട് ഒഴിവാക്കി ഇന്ന് പകൽപ്പൂരം ഒരു ആനപ്പുറത്ത് എഴുന്നള്ളത്ത് മാത്രമായി നടത്തും

വരണാധികാരിയും നിയമസഭാ സെക്രട്ടറിയുമായ് എസ്

ഉണ്ണികൃഷ്ണൻ നായരാണ് ഇക്കാര്യം അറിയിച്ചത്

തിങ്കളാഴ്ചയാണ് ഏഴാം ഘട്ട വോട്ടെടുപ്പ് കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമ ബംഗാളിൽ റോഡ്ഷോയ്ക്കും വാഹന റാലിക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു

അഞ്ച് കിലോഗ്രാം ഭക്ഷ്യധാനൃങ്ങൾ ഓരോ വൃക്തിക്കും മെയ് ജൂൺ മാസങ്ങളിൽ നൽകും

കോവിഡ് വൃാപനത്തിന്റെ രണ്ടാം തരംഗം രാജ്യത്ത് രൂക്ഷമായ സാഹചര്യത്തിൽ ദരിദ്ര വിഭാഗങ്ങൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാനാണ് നടപടിയെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി

കേന്ദ്രത്തിന് കീഴിലുള്ള ആശുപത്രികളിൽ ആയിരക്കണക്കിന് ഒബ്രഡുകൾ അധികമായി അനുവദിക്കുകയും ഡൽഹിയുട്ടെ പ്പ് ഓർക്സിജൻ വിഹിതം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്

തുടർന്ന് പരിപാടിയുടെ മലയാളം പരിഭാഷയും ഉണ്ടാകും